വടക്ക് കിഴക്കൻ ഡൽഹിയിലുണ്ടായ സംഘർഷങ്ങൾ ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുണ്ടായ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരു സഭക്കളും ഇന്നത്തേക്ക് പിരിഞ്ഞു

രാജ്യത്തിന്റെ വികസനൃത്തിനാ്യി സമൂഹത്തിൽ സമാധാനവും ഐക്യ്വുംഉറപ്പാക്കണമെന്ന് ബി ജെ

മാറ്റരോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി

പുൽവാമ ആക്രമണവുമായി ബന്ധപ്പെട്ട് രണ്ട് പേരെ കൂടി ദേശീയ അന്വേഷണ ഏജൻസി അറസ്റ്റ് ചെയ്തു

പൌരത്വ ഭേദഗതി നിയമം രാജ്യത്തിന്റെ ആഭ്യന്തരകാര്യമാണെന്നും വിഷയത്തിൽ പുറമേ നിന്നുള്ളവർക്ക് ഇടപെടാനാകില്ലെന്നും ആവർത്തിച്ച് വിദേശകാര്യമന്ത്രാലയം

കൂടുതൽ വിവരങ്ങളുമായി കരോൾ അബ്രഹാം

തുടർച്ചയായ ബഹളത്തെ തുടർന്ന് രണ്ട് തവണ നിർത്തിവച്ച സഭ ഉച്ചയ്ക്ക് ശേഷം വീണ്ടും ്സമ്മേളിച്ചപ്പോൾ പ്രതിപക്ഷാംഗങ്ങൾ പ്രതിഷേധവുമായി രംഗത്തെത്തി

സ്പീക്കറുടെ ഈ നിർദ്ദേശം അവഗണിച്ച പ്രതിപക്ഷം വിഷയത്തിൽ ഉടൻ ചർച്ച വേണമെന്ന് ആവശ്യപ്പെട്ടു രാജ്യസഭയിലും ഇതേ സ്ഥിതി തുടർന്നു

അടിയന്തര പ്രാധാന്യമുള്ള വിഷയമായതിനാൽ നാളെ തന്നെ വിഷയം ചർച്ചയ്ക്കെടുക്കണമെന്ന് കോൺഗ്രസ് നേതാവ് ആനന്ദ് ശർമ്മ ആവശ്യപ്പെട്ടു

ന്യൂസ് ഡെസ്ക് ആകാശവാണി

സംഘർഷം നിലനിന്നിരുന്ന ഡൽഹിയിലും രാജ്യത്തെ മറ്റ് ചില ഭാഗങ്ങളിലും സാധാരണ നില പുനസ്ഥാപിച്ചു കൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു

അതുകൊണ്ടുതന്നെ ഹോളി ആഘോഷങ്ങൾക്ക് ശേഷം സമാധാന അന്തരീക്ഷം പുനസ്ഥാപിക്കുന്നതിന് മുൻതൂക്കം നൽകി ഡൽഹി വിഷയം ചർച്ച ചെയ്യുന്നതാകും ഉചിതമെന്നും ശ്രീ രവിശങ്കർ പ്രസാദ് അഭിപ്രായപ്പെട്ടു

സമൂഹത്തിൽ സമാധാനവും ഐക്യവും ഉറപ്പാക്കണമെന്ന് ബ്രി ജെ

മാരോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആവശ്യപ്പെട്ടു ഡൽഹിയിൽ ബി ജെ

പാർലമെന്ററി പാർട്ടി സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

ഭീകരർക്ക് വേണ്ട സഹായങ്ങൾ നൽകിയതാണ് ഇവർക്കെതിരെയുള്ള കുറ്റം

ഭടൻമാരാണ് വീരമൃത്യു വരിച്ചത്

ഐ

യുടെ ഭൂരിഭാഗം ഓഹരികളുടെയും ഉടമ കേന്ദ്ര സർക്കാർ തന്നെയായിരിക്കുമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പോളിസി ഉടമകളുടെ താത്പര്യം സംരക്ഷിച്ചു കൊണ്ട് സ്ഥാപനത്തിന്റെ നിയന്ത്രണം തുടർന്നും സർക്കാർ തന്നെ നിർവ്വഹിക്കുമെന്നും അവർ രാജ്യസഭയെ രേഖാമൂലം അറിയിച്ചു

സി ഓഹരികളുടെ ഒരു ഭാഗം വിറ്റഴിക്കാനുള്ള നിർദ്ദേശം കേന്ദ്ര സർക്കാർ മുന്നോട്ടുവച്ചത്

വോട്ടെടുപ്പ് നടന്ന് ഒരു മണിക്കൂറിനുള്ളിൽ വോട്ടെണ്ണൽ നടക്കുമെന്നും കമ്മീഷൻ അറിയിച്ചു

ഇന്ത്യയിലെ ഇറാൻ സ്ഥാനപതിയായ അലി ചെഗേനിയെയാണ് വിളിച്ചുവരുത്തിയത് ഡൽഹിയിലെ സംഭവവികാസങ്ങൾ സംബന്ധിച്ച ഇറാൻ വിദേശകാര്യ മന്ത്രിയുടെ പരാമർശം അംഗീകരിക്കാനാകുന്നതല്ലെന്ന് ഇറാൻ സ്ഥാനപതിയെ അറിയിച്ചതായി വിദേശകാര്യ വക്താവ് രവീഷ് കുമാർ പറഞ്ഞു ഇറാൻ പോലുള്ള ഒരു രാജ്യത്തുനിന്ന് ഇത്തരം പ്രതികരണങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി

രാജ്യത്തിന്റെ പരമാധികാരം സംബന്ധിച്ച് ഒരു വിദേശ രാജ്യത്തിനും പ്രത്യേക നിലപാടുകൾ ഇല്ലെന്നും വിദേശകാര്യ വക്താവ് രവീഷ് കുമാർ പ്രസ്താവനയിൽ പറഞ്ഞു പൌരത്വ ഭേദഗതി നിയമം സംബന്ധിച്ച് മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടിയുള്ള ഐക്യരാഷ്ട്ര സഭ ഹൈകമ്മീഷണർ സുപ്രീം കോടതിയിൽ ഇടക്കാല ഹർജി സമർപ്പിച്ചതിന് തൊട്ടുപിന്നാലെയാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രതികരണം പൌരത്വ ഭേദഗതി നിയമത്തിന് ഭരണഘടനാ സാധുതയുള്ളതാണെന്നും ഭരണഘടനാ മൂല്യങ്ങൾ അനുസരിച്ചാണ് നിയമ ഭേദഗതിയെന്നും അദ്ദേഹം പറഞ്ഞു

ദശലക്ഷങ്ങൾക്ക് ഇത് പ്രചോദനമാകുമെന്നും അദ്ദേഹം ടിറ്ററിൽ കുറിച്ചു

ഇതിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടുന്നവ പ്രധാനമന്ത്രിയുടെ സമൂഹ മാധ്യമ അക്കൌണ്ടുകളിൽ ്പ്രസിദ്ധീകരിക്കും

വിവിധ വിമാനത്താവളങ്ങളിലായി അഞ്ച് ലക്ഷത്തിലധികം യാത്രക്കാരെയാണ് പരിശോധനയ്ക്ക് വിധേയരാക്കിയത്

ഇതുവരെ സ്ഥിരീകരിക്കപ്പെട്ട അഞ്ച് കേസുകളിൽ കേരളത്തിൽ നിന്നുള്ള മൂന്ന് പേരെ പരിശോധനാ ഫലം നെഗറ്റീവായതിനെ തുടർന്ന് നേരത്തെ ആശുപത്രിയിൽ നിന്നും വിട്ടയച്ചിട്ടുണ്ട്

കൊറോണ വൈറസ് ബാധയെ തുടർന്ന് ആഗോള ആഭ്യന്തര സാമ്പത്തിക മേഖലകളിലെ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് റിസർവ് ബാങ്ക് വ്യക്തമാക്കി

ജനങ്ങൾ പ്രിഭ്രാന്തരാകേണ്ട ആവശ്യമില്ലെന്നും സ്വന്തം സുരക്ഷയും രോഗപ്രതിരോധവും ഉറപ്പുവരുത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുകയാണ് വേണ്ടതെന്നും അദ്ദേഹം ടിറ്ററിൽ കുറിച്ചു

വൈറസിന്റെ വ്യാപനം തടയാനും സുരക്ഷിത്തം ഉറപ്പാക്കാനും ആവശ്യമായ എല്ലാ നടപടികളും ഭരണകൂടം സ്വീക്രിച്ചു വരുന്നതായും ഡൽഹി ആരോഗ്യമന്ത്രി സത്യേന്ദർ ജയ്ൻ മാധ്യമങ്ങളോട് പറഞ്ഞു

വിഷ്യം ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷത്തെ ഷാഫി പറമ്പിൽ ഉന്നയിച്ച അടിയുന്ത്ര പ്രമേയ ചർച്ചക്ക് സ്പീക്കർ അനുമതി നിഷേധിച്ചതിന് പിന്നാലെയായിരുന്നു ഇറങ്ങിപ്പോക്ക്

ഹൈക്കോടതി ഉത്തരവിൽ നിയമോപദേശം തേടിയതിന് ശേഷം ബില്ലിന് അന്തിമ രൂപം നൽകുമെന്നും ശ്രീ കെ ടി ജലീൽ അറിയിച്ചു

മയക്ക് മരുന്ന് വ്യാപാരം നടത്തവെ മറ്റൊരു റോഹിംഗ്യൻ വംശജനും ബംഗ്ലാദേശ് അതിർത്തിരക്ഷാ സേനയുടെ വെടിയേറ്റു മരിച്ചു

വ്യാപ്പ് എ യിൽ എട്ട് പോയിന്റ് നേടിയാണ് ഇന്ത്യ സെമി ഫൈനലിൽ എത്തിയത്

ദക്ഷിണാഫ്രിയ്ക്ക് ഏഴ് പോയിന്റും ് ഇംഗ്ലണ്ടിനും ഓസ്ട്രേലിയയ്ക്കും ആറ് പോയിന്റും വീതമാണുള്ളത് ഫൈനൽ മത്സരം ഞായറാഴ്ച മെൽബണിൽ നടക്കും